പൈപ്പ് ലൈൻ ഗ്രിഡ് സ്ഥാപിക്കാൻ അയ്യായിരം കോടി രൂപ കേന്ദ്രം അനുവദിച്ചു

മാർഗ്ഗനിർദ്ദേശങ്ങൾ ഗവൺമെന്റ് പരിഷ്ക്കർിച്ചു

ഇന്തൃ മുൻകൈ എടുത്താൽ സ്വാഗതം ചെയ്യുമെന്ന് ഇറാൻ അംബാസിഡർ അലി ചെഗേനി

ഇറാൻ പിൻവാങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ടംപ്

സിന്ധൂ സൈന നെഹ് വാൾ എച്ച് എസ് പ്രണോയ് സമീർ റെഡ്ഡി എന്നിവർ ഇന്ന് രണ്ടാം റൌണ്ട് മൽസരങ്ങളിൽ

കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനു ഒരു രാജ്യത്തിന് തെളിവുകളും മറ്റും ആവശ്യപ്പെടാം സാക്ഷിമൊഴികളോ രേഖകളോ ശേഖരിക്കാം പുതുക്കിയ മാർഗ നിർദ്ദേശമനുസരിച്ച് അന്വേഷണ ഏജൻസികൾക്ക് ഘട്ടം ഘട്ടമായി സമൻസുകളോ നോട്ടീസുകളോ മറ്റു നിയമ രേഖകളോ ആവശ്യപ്പെടാം സമീപ കാലത്ത് നിയമപരവും സാങ്കേതികവുമായ മാറ്റങ്ങൾ ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടുതൽ കൃതൃതയ്ക്ക് വേണ്ടിയാണ് മാർഗ നിർദ്ദേശങ്ങളെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

രാജ്യത്തിന്റെ വികസനത്തിനായി പ്രവാസികൾ നൽകി വരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കുന്നത്

പൌരത്വ ഭേദഗതി നിയമം വിദേശികൾക്ക് മാത്രമാണ് ബാധകമെന്നും ഒരു മതത്തിലും ജാതിയിലുമുള്ള ഇന്ത്യക്കാരനും നിയമത്തെച്ചൊല്ലി ആശങ്കപ്പെടാനില്ലെന്നും സംഘാംഗങ്ങൾ വ്യക്തമാക്കി

ഇന്ന് രാവിലെ ജനറൽ നരവാനേ വീരമൃത്യു വരിച്ച സേനാംഗങ്ങൾക്ക് യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിക്കും തുടർന്ന് കരസേനാ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തും

ഇന്നലെ കശ്മീരിലെ ഷോപ്പിയാൻ പുൽവാമ ജില്ലകളിലെ സുരക്ഷ അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പോലീസിന്റെയും സുരക്ഷാ സേനയുടേയും ത്യാഗത്തിന്റെയും കഠിനാദ്ധ്യാനത്തിന്റെയും ഫലമായാണ് ജമ്മുകശ്മീരിൽ സമാധാനാത്യത്ത്ീക്ഷം സൃഷ്ടിക്കാനായത് ജനങ്ങളുടെ സുരക്ഷയാണ് പോലീസിന്റ് പ്രെർമി പ്രധാനമെന്നും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ജനങ്ങളു്ടെ സേവനത്തിനായി പരിപൂർണ്ണ ആത്മാർത്ഥതയോട്ടെ പ്പൂർത്തിക്കണമെന്നും ഡി ജി

ചൊവ്വാഴ്ച ലക്ഷദ്വീപിലെത്തിയ രാഷ്ട്രപതി കവരത്തി അഗത്തി ബംഗാരം ദ്വീപുകൾ സന്ദർശിച്ചു രാഷ്ട്രപതിയും കുടുംബവും ഗ്ലാസ്സ് ബോട്ടിൽ യാത്ര ചെയ്തു ലക്ഷദ്വീപ് മത്സ്യതൊഴിലാളികളുടെ പരമ്പരാഗത മത്സ്യബന്ധന ശൈലിയായ പോൾ ആന്റ് ലൈനിങ്ങ് ഫിഷിംങ്ങ് രാഷ്ട്രപതി നേരിൽ കണ്ടു

രാഷ്ട്രപതി കൊച്ചി വഴിയാണ് ഡൽഹിയിലേക്ക് മടങ്ങുന്നത്

ഇറാൻ യുദ്ധമല്ല സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് ന്യൂഡൽഹിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആഗോള സമാധാനത്തിന് മുഖ്യ പങ്കുവഹിക്കുന്ന രാജ്യമായ ഇന്ത്യ മേഖലയിലെ സുപ്രധാന രാഷ്ട്രം കൂടെയാണ് ലോകത്ത് സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരാൻ ഇന്ത്യ നിർദ്ദേശിക്കുന്ന ഏതു പദ്ധതിയോടും ഇറാന് യോജിപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു

ജയശങ്കറുമായി ഞായറാഴ്ച നടത്തിയ കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നു ലോകസമാധാനത്തിനായി ഇരു രാജൃങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇറാൻ സ്ഥാനപതി പറഞ്ഞു

സേനാ താവളത്തില്ലെ ആക്രമണത്തിനു ശേഷം ഇറാൻ പിൻവാങ്ങിയതായി അമ്മേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് നല്ല കാര്യമാണെന്നും ്യടംപ് പ്രതികരിച്ചു ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ ക്സെനികർക്ക് ജീവഹാനി ഉണ്ടായിട്ടില്ലെന്ന് ഡൊണ്ട്രൂൾഡ് ട്രംപ് പറഞ്ഞു ഇന്നലെ പുലർച്ചെയാണ് ഇറാഖിലെ അമേരിക്കൻ വ്യോമ താവളം ഇറാൻ ആക്രമിച്ചത്

അമേരിക്ക ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് എന്നാൽ അത് പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇറാനെതിരായി കൂടുതൽ സാമ്പത്തിക ഉപരോധം കൊണ്ടു വരുമെന്നും ട്രംപ് അറിയിച്ചു അതേസമയം സേനാ താവളത്തിൽ നടത്തിയ ആക്രമണം അമേരിക്കയുടെ മുഖത്തേറ്റ അടിയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേയി അറിയിച്ചു

ആക്രമണങ്ങളെ വിമർശിച്ച ഇറാഖ് തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനു നേർക്കുള്ള ആക്രമണമാണെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു ഇറാഖ് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നും തങ്ങൾക്ക് ആഭ്യന്തര സുരക്ഷ പരമപ്രധാനമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു തങ്ങളുടെ നാട് ഒരു സംഘർഷ ഭൂമിയാക്കാനോ അയൽരാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താനുള്ള ഇടമാക്കാനോ അനുവദിക്കില്ലെന്നും ഇറാഖ് വ്യക്തമാക്കി

എണ്ണ വിതമ്ങ്ങ് ്ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളുമായി വിദേശകാര്യമന്ത്രിക്കുസ് ്ജയശങ്കർ ആശയവിനിമയം നടത്തി

സുപ്രധാന ഇന്ധന ഉപഭോഗ രാജ്യമെന്ന് ത്ലില്യിൽ ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക്യാണ്ണെന്നും ശ്രീ ധർമേന്ദ്ര പ്രധാൻ അറിയിച്ചു

ചൊവ്വാഴ്ച ബംഗളുരുവിൽ നിന്നും അറസ്റ്റ് ചെയ്ത് മൂന്ന് പേരെ ഇന്നലെ ചെന്നൈയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാന്റ് ചെയ്തു അഞ്ചു പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ മാസം സംഘാംഗങ്ങൾ സംസ്ഥാനത്ത് നിന്നും അപ്രത്യക്ഷമായതു സംബന്ധിച്ച് ഇന്റലിജൻസ് വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചതായി സംസ്ഥാന പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു ഇവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്താൻ തയ്യാറെടുത്തിരുന്നതായും ഇതര സംസ്ഥാനങ്ങളിൽ ഇവർ ശൃംഖല വ്യാപിപ്പിക്കുകയായിരുന്നെന്നും സംശയിക്കുന്നു

വോയിസ് ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ അസാം മുഖ്യമന്ത്രി സ്കർബ്ബാനന്ത് സോനോബാൾ കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജു ഏമുഖ് കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ഖേലോ ഇന്ത്യ്കായികമേളയ്ക്ക് വേദിയാവാൻ സാധിച്ചതിൽ സംസ്മൂനത്തിന് അതിയായ സന്തോഷമുണ്ടെന്ന് ശ്രീ

ഖേല്ലോ ഇന്ത്യ രാജ്യത്തെ യുവാക്കളെ കായിക രംഗത്തേയ്ക്ക് കൂടുതൽ അടുപ്പിച്ചതായി കേന്ദ്ര മന്ത്രി അറിയിച്ചു

സിന്ധു സൈന നെഹ്വാൾ എച്ച്

പ്രണോയ് സമീർ റെഡ്ഡി എന്നിവർ ഇന്ന് രണ്ടാം റൌണ്ട് മത്സരങ്ങളിൽ കളിക്കും പ്രണോയ് ലോക ഒന്നാം നമ്പർ ജപ്പാന്റെ കെന്റോ മെമോട്ടയെയും സമീർ മലേഷ്യയുടെ ലി സി ജിയയെയും നേരിടും നിലവിലെ ലോക ചാമ്പ്യൻ സിന്ധു ജപ്പാന്റെ അയാ ഓഹോരിയെയും ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവ് സൈന കൊറിയയുടെ അൽ സേയങിനെയും നേരിടും

സായ്പ്രണിതും കിടംബി കാന്തും ഇന്നലെ നടന്ന ഒന്നാം റൌണ്ട് മത്സരത്തിൽ പുറത്തായിരുന്നു